ആരോപണം തെറ്റെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല വിഷയത്തിൽ പിണറായി വിജയൻ ഹിറ്റ്ലറാകാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേഷ് ചെന്നി ത്തല കലാപമുണ്ടാക്കാൻ ബി ജെ പി പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ സന്നിധാനത്തെ അറസ്റ്റുകളിൽ ജുഡീഷ്യൻ അന്വേഷണം വേണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള

സമാധാനത്തോടെയും ശാന്തിയോടെയും അയ്യപ്പ ദർശനം നടത്താൻ കഴിയണമെന്നും അശാന്തിയുടെ സ്ഥലമായി സന്നിധാനത്തെ മാറ്റാൻ പറ്റില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓരോ ജില്ലയിലുള്ളവർക്കും പ്രത്യേക ചുമതല കൊടുത്ത് പ്രശ്നങ്ങളു ണ്ടാക്കാൻ ശബരിമലയിലേക്ക് നിയോഗിക്കുകയാണെന്ന് മുഖ്യ മന്ത്രി പറഞ്ഞു സമൂഹത്തിൽ വിശ്വാസികളാണ് കൂടുതലെന്നും ഗവ ഇവർക്കൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു പരമോന്നത നീതി പീഠത്തിന്റെ വിധി അനുസരിക്കുകയല്ലാതെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഗവൺമെന്റിന് പിടിവാശിയില്ല ഏത് ഗവ ആയാലും ഇതല്ലാതെ വേറൊരു വഴിയില്ലെന്നും പിണറായി പറ ഞ്ഞു വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ ഗവ ശ്രമിക്കു ന്നില്ല ഇക്കാര്യത്തിൽ സ്ത്രീകളാണ് തീരുമാനം എടുക്കേണ്ടത് മതനിരപേക്ഷ ജാതി നിരപേക്ഷ സംസ്ഥാനമായി കേരളത്തെ നിലനിർത്താൻ എല്ലാ വരും ശ്രമിക്കണമെന്നും ഇന്നത്തെ കേരളത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ്അജണ്ട അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും പിണറായി പറഞ്ഞു ഇതിന് മാധ്യമങ്ങൾ നേതൃത്വപരമായ പങ്ക് വഹിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ശബരിമല വിഷയത്തിൽ തെറ്റ് പറ്റിയോ എന്ന് മാധ്യമങ്ങൾ പരിശോധിക്കണമെന്നും പിണറായി പറഞ്ഞു പഴയകാലമോർത്ത് മാധ്യമങ്ങൾ ശരിയായ നയം തിരിച്ചു പിടിക്കണമെന്നും മുഖ്യ മന്ത്രി ആവശ്യപ്പെട്ടു സമ്മേളനത്തിൻരെ ഭാഗമായി ടൌൺഹാളിൽ സംഘടിപ്പി ക്കുന്ന പ്രളയം അതിജീവനം ഫോട്ടോ പ്രദർശനവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു

കരിങ്കൊടി കാണിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ശ്രമിച്ച മൂന്ന് പേരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു ് ശബരിമലയിൽ തീർത്ഥാടകർക്ക് അടിസ്ഥാന സൌകരൃങ്ങൾ ഒരുക്കുന്നതിൽ ഗവൺമെന്റും ദേവസ്വം ബോർഡും പൂർണ്ണപരാ ജയമാണെന്ന് കേന്ദ്രസഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കുറ്റ പ്പെടുത്തി നിലയ്ക്കലും പമ്പയിലും തീർത്ഥാടകർക്ക് ഏർപ്പെടു ത്തിയ സൌകര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു അദ്ദേഹം

ഗുരുതർമായ ശുചിത്വ പ്രശ്നം ശബരി മലയിൽ നിലനിൽക്കുകയാണ്

ചെല വഴിച്ചില്ലെന്ന് കണ്ണന്താനം കുറ്റപ്പെടുത്തി ശബരിമലയിലെ ഇപ്പോ ഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സംസ്ഥാന ഗവൺമെന്റാ ണെന്നും അദ്ദേഹം പറഞ്ഞു സന്നിധാനത്ത് എത്തുന്ന ഭക്തരെ ഭീകരരായി മുദ്രകുത്തി ജയി ലിലടക്കുന്നത് തെറ്റാണ്

സ്ത്രീ പ്രവേശന കാരൃത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെയെന്നും ഗവ തീർത്ഥാടകർക്ക് മതിയായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കണമെന്നും കണ്ണന്താനം നിർദേശിച്ചു പമ്പയിലെ ശുചി മുറികളിലെ അപര്യാപ്തത പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥരെ കണ്ണ ന്താനം ശാസിച്ചു ശബരിമലയിലേക്ക് കേന്ദ്രസേനയെ അയക്കേണ്ട സാഹചര്യ ം തോന്നുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

ശബരിമല വിക സന കാര്യ ത്തിൽ കേന്ദ്ര സ ഹ മന്ത്രി അൽഫോൺസ് കണ്ണന്താനം സംസ്ഥാന ഗവൺമെന്റിനെതിരെ തെറ്റായ ആരോ പണങ്ങൾ ഉന്നയിക്കു ക്യാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു

പദ്ധതികൾക്കാവശൃമായ ബാക്കി തുക കിഫ്ബി അടക്കം സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താൻ ഗവ ശ്രമിക്കുക യാണെന്നും കടകംപള്ളി കണ്ണൂരിൽ പറഞ്ഞു പെരിയാർ ടൈഗർ റിസർവ് ഉൾപ്പെടെ വനമേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാണ് അനുമതി നൽകേ ണ്ടത് സാങ്കേതിക പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്ന കാലതാമസം പരി ഹരിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നാണ് നടപടിയു ണ്ടാകേണ്ടത് ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ പേരിലല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ഏതാനും വോട്ടുകളിൽ മാത്ര മാണ് ബി ജെ പിയുടെ കണ്ണെന്നും കടകംപള്ളി പറഞ്ഞു

അയ്യപ്പ ദർശനത്തിന് ശേഷം തിരിച്ചിറങ്ങിവരെ പൊലീസ് പ്രകോപിപ്പിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

നിരീശ്വരവാദികളുടെ ആസൂത്രിത നീക്കമാണ് ശബരിമല വിഷയത്തിൽ നടക്കുന്നതെന്നും ശ്രീധ രൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു പുല കഴിയാതെ ബി ജെ പി സംസ്ഥാന ജിനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ മല ചവിട്ടിയെന്ന മന്ത്രി കട്കംപള്ളി സുരേന്ദ്രന്റെ പരാമർശം തെറ്റാണ്

അത് അംഗീ കരിച്ച് മന്ത്രി മാപ്പു പറയണമെന്നും ശ്രീധരൻപിള്ള ആവശ്യപ്പെ ട്ടു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയിൽ ഇന്ന് സാവകാശ ഹർജി നൽകും ശബ രിമലയിലെ ഇപ്പോഴത്തെ സാഹചര്യവും പ്രശ്നങ്ങളും ഹർജി യിൽ ബോർഡ് വ്യക്തമാക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതാനും ഹർജികൾ ഇന്ന് ഹൈക്കോടതിയും പരിഗണിക്കും ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സമർപ്പിച്ച പുന പരിശോധനാ റിട്ട് ഹർജികൾ നേരത്തെ പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി വീണ്ടും നിരാകരിച്ചു അഭിഭാഷകനായ മാത്യു നെടുമ്പാറയാണ് രാവിലെ കോടതിയിൽ വിഷയം ഉന്നയി ച്ചത്

നേരത്തെയും ഈയാ വശ്യം കോടതി തള്ളിയിരുന്നു ട ശബരിമലയിൽ പൊലീസ് അതിരുകടക്കുകയാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു അമിത ഇടപെടൽ പാടില്ലെന്നും സന്നി ധാനത്ത് ഇത്രയും പൊലീസ് എന്തിനാണെന്നും കോടതി ചോദി ച്ചു സംഭവത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ഒന്നേമുക്കാലിന് ഹാജ രായി വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടു ഭക്തരെ ബന്ദിയാക്കി കോടതി വിധി നട പ്പാക്കേണ്ടെന്നും ഹൈക്കോടതി അറിയിച്ചു സന്നിധാനത്ത് തീർത്ഥാടകരെ രാത്രി തങ്ങാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങൾക്ക് ആര് അധികാരം നൽകിയെന്നും കോടതി ചോദിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നിയ ന്ത്രണം പാടില്ലെന്നും കോടതി പറഞ്ഞു

ആറ് മണിക്കൂറിനകം മലയിറങ്ങണമെന്നും മാധ്യമങ്ങളോട് പ്രകോപനപരമായി സംസാരിക്കരുതെന്നും നാമജപം ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നും നിർദേശം നൽകി യാണ് ശശികലയെ മലകേറാൻ അനുവദിച്ചത്

ശബരിമല വിഷയത്തിൽ പിണറായി വിജയൻ ഹിറ്റ്ലർ ആകാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല കുറ്റപ്പെടുത്തി മഴ വന്നപ്പോൾ പന്തലിലേക്ക് കയറിയ ഭക്ത ജനങ്ങളെ അറസ്റ്റു ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാ ണെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു അവരിൽ ബി ജെ പി ക്കാർ മാത്രമല്ല എല്ലാ കക്ഷികളിലുംപെട്ടവർ ഉണ്ടായിരുന്നു

ബി ജെ പിയിലേക്ക് മറ്റ് ജനങ്ങളെക്കൂടി റിക്രൂട്ട് ചെയ്യാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് ചെന്നിത്തല പറഞ്ഞു

ശബരിമലയെ അയോധ്യയാക്കി മാറ്റാൻ ബി ജെ പി ശ്രമിക്കു കയാണെന്ന് കെപിസിസി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റ പ്പെടത്തി ഈ നീക്കത്തിനെതിരെ പ്രചാരണം നടത്തിയില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു ശബരിമലയിൽ കലാപമുണ്ടാക്കാൻ ബി ജെ പി വൃക്തമായ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടു ത്തി സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും കൃത്യമായ സമര പദ്ധതി സംസ്ഥാന നേതൃത്വം തയ്യാ റാക്കി സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവന ന്തപുരത്ത് വാർത്തസമ്മേളനത്തിൽ പറഞ്ഞു

ഡൽഹി യിൽ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിൽ രാവിലെ മുൻ ്രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉപരാഷ്ട്രപതി ഡോ ഹാമിദ് അൻസാരി സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യ ക്ഷൻ രാഹുൽ ഗാന്ധി തുടങ്ങി പ്രമുഖർ ആദരാജ്ഞലി അർപ്പി ച്ചു കെ പി സിസി ആസ്ഥാനമായ തിരുവനന്തപുരം ഇന്ദിരാഭവ നിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു

ഡി സിസി ബ്ലോക്ക് മണ്ഡലം കമ്മറ്റികളുടെ നേതൃത്വത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

മതസൌഹാർദ്ദം അരക്കിട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ദേശീയോദ്ഗ്രഥന വാരാഘോഷ കാലത്ത് എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടി പ്പിക്കും ഗവൺമെന്റ് ഓഫീസുകളിൽ ജീവനക്കാർ രാവിലെ ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയെടുക്കും വർഗ്ഗീയതയ്ക്കും ഹിംസയ്ക്കും എതിരായ സന്ദേശങ്ങളും മതേത്രത്വത്തിന്റെ പ്രാധാനൃവും ഉയർത്തിക്കാട്ടി ഇന്ന് സെമിനാറുകളും സിമ്പോ സിയങ്ങളും സംഘടിപ്പിക്കും

സമാപന ദിവസമായ ഞായറാഴ്ച സാമുദായിക സൌഹാർദ്ദ പതാക ദിനമായി ആചരിക്കും

ആർ ബി ഐ ഗവർണർ ഉർജ്ജിത് പട്ടേൽ രാജിവെക്കുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം സമ്മർദ്ദങ്ങൾക്ക് വഴ ങ്ങില്ലെന്നാണ് ആർ ബി ഐ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്

ദേവഗുരുവും വായുദേവനും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ഈ ദിവസമാണെന്നാണ് സങ്കൽപ്പം ഇന്നലെ രാത്രി മുതൽ ഭക്തരുടെ വൻ തിരക്കാണ് ഗുരുവാ യുരിൽ